ശക്തമായ ഇടപെടൽ നടത്തിവരികയാണെന്ന് കേന്ദ്രസർക്കാർ

രാജ്യത്ത് ഉള്ളിലഭ്യത ഉറപ്പാക്കാൻ കഴിഞ്ഞമാസംതന്നെ ഉള്ളികയറ്റുമതിക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു മിതമായനിരക്കിൽ ഉള്ളിവില പിടിച്ചുനിർത്താൻ സാധിച്ചെങ്കിലും മഹാരാഷ്ട്ര കർണാടക മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ മഴ കനത്ത നാശംവിതച്ചതോടെയാണ് വില ഉയരാൻ തുടങ്ങിയത് രാജ്യത്തേക്ക് ഉള്ളി ഇറക്കുമതി ചെയ്യാനുള്ള നിയന്ത്രണങ്ങൽ ലഘൂകരിക്കാനും നടപടിയെടുത്തെന്ന് മന്ത്രാലയം അറിയിച്ചു

സ്വതന്ത്രജനാധിപതൃരാജൃമായ ഇന്ത്യ സവിശേഷമായ പരാമാധികുള്ളത്തിൽ അധിഷ്ഠിതമായ നിയമനിർമാണമാണ് നടത്തുന്നൂത്തെണു്ം നിയമലംഘനങ്ങളെ മനുഷ്യാവകാശമായ് കണ്ട് അംഗീരിച്ചുകൊടുക്കാനാകില്ലെന്നും വിദേശമന്ത്രാലയ വക്താവ് ് അനുരാഗ് ശ്രീവാസ്ഥവ പ്രതികരിച്ചു കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള പ്രതികരണമാണ് യുഎൻ സ്ഥാപനങ്ങളിൽ നിന്ന് ഉണ്ടാകേണ്ടതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു സുവൃക്തമല്ലാത്ത നിയമങ്ങൾഎതിർശബ്ദങ്ങളെ അടിച്ചമർത്താനായി ഉപയോഗപ്പെടുത്തുന്നുവെന്നാണ് യുഎൻ ഹൈകമ്മീഷണർ ആരോപിച്ചത് സർക്കാർ നേരത്തെ ഇതരസംഘടനകൾക്ക് വിദേശഫണ്ട് സ്വീകരിക്കുന്നതിലുള്ള നിയന്ത്രണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാമർശം

അതിർത്തിയിൽ സമാധാനം നിലനിർത്താൻ വേണ്ട നടപടികൾ ആഭ്യന്തരമന്ത്രാലയം സ്വീകരിച്ചതായി അദ്ദേഹം പറഞ്ഞു

സോനോവാൾ കേന്ദ്രമന്ത്രിയെ അറിയിച്ചു

കനത്ത മഴമൂലമുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനായിട്ടാണ് മൂന്നു ദിവസത്തെ സന്ദർശനം

മാർച്ചിൽ ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്ന വിവിധ വിഭാഗം ഓഹരികൾ പിന്നീട് വൻതോതിൽ തിരിച്ചെത്തി

കോൺഫഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ പരിപാടിയിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഒമ്പത് കോവിഡ്മഹമാരി വരും മാസങ്ങളിലും ശക്തിയായ് തുടരുകയാണെങ്കിൽ വ്യാപാരനിയന്ത്രണങ്ങളും മറ്റും തുടരാൻ രാജ്യങ്ങൾ നിർബന്ധിതമാകുമെന്നും യുഎൻ റിപ്പോർട്ടിൽ പറയുന്നു

ബംഗ്ലാദേശ് വിമോചനയുദ്ധത്തിൽ പങ്കാളിയായ ഇന്ത്യൻ യുദ്ധകപ്പൽ ഐഎൻഎസ് കവരത്തിയുടെ സ്മരണയിലാണ് പടക്കപ്പലിന് ഈ പേര് നൽകിയത് വിശാഖപട്ടണം നാവികആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ ആർമിചീഫ് ജനറൽ മനോജ് മുകുന് നരവാനെ പങ്കെടുക്കും

സ്വർഗ്ഗ പ്രേമികൾക്കും കുടുംബമായി കഴിയാൻ അവകാശമുണ്ടെന്നും അവരെ പൊതു നിയമവ്യവസ്ഥയുടെ ഭാഗ്മാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു റോം ചലച്ചിത്രമേളയിൽ ഇന്നലെ ആദ്യമായി പ്രദർശിപ്പിച്ച ഫ്രാൻസിസ്കോ എന്ന ഡോക്യുമെന്ററിയിലാണ് മാർപ്പാപ്പയുടെ അഭിപ്രായ പ്രകടനം

തിന്മക്കു മേൽ നന്മ വരിച്ച വിജയമാണ് ദുർഗ്ഗാ പൂജ വെളിവാക്കുന്നതെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

ക്ഷേത്രങ്ങളിലും കേന്ദ്രങ്ങളിലും സംഗീതവിദ്യാലയങ്ങളിലും നാളെ പൂജവയ്ക്കും

കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർക്കു മാത്രമേ പ്രവേശനാനുമതി നൽകൂ ഏഴ് ദിവസം കാറന്റീൻ ഉറപ്പാക്കണം

വിശദാംശങ്ങളിലേക്ക്

ഏത്തക്കായ കുമ്പളം വെള്ളരി പാവൽ പടവലം വള്ളീപ്പയർ തക്കാളി വെണ്ട കൃാബേജ് കാരറ്റ് ഉരുളക്കിഴങ്ങ് ബ്ലീൻസ് കൈതച്ചുക്ക മരിച്ചീനി വെളുത്തുള്ളി ബീറ്റ്റൂട്ട് തുടങ്ങിയിപ്പൂയ്ക്കാണ് താങ്ങുവില ഉൽപാദന ചെലവും ഉൽപാദന ക്ഷ്മത്യും കണക്കിലെടുത്താണ് വില നിശ്ചയിച്ചത്

ഒരു പഞ്ചായത്തിൽ ഒരു വിപണനകേന്ദ്രമെങ്കിലും തുറക്കും

പച്ചക്കറിയുടെ പിപണനവില ഇടിയുന്ന അവസരത്തിൽ കർഷകർക്ക് തറവില വലിയ ആശ്വാസമാകും

ടോക്കിയോ ഒളിംപിക്സും വരാനിരിക്കുന്ന പാരലിംബിക്സും ലക്ഷ്യമിട്ടുള്ള പരിശീലനങ്ങൽക്കാണ് തുടക്കമാകുക കായികതാരങ്ങളെ സുരക്ഷിതമായി പരിശീലന കേന്ദ്രങ്ങളിൽ എത്തിക്കാനുള്ള പ്രത്യേക സൌകര്യം ഏർപ്പെടുത്തുമെന്നും സായ് വാർത്താകുറിപ്പിൽ അറിയിച്ചു

ഇന്നു മുതൽ തമിഴ്നാട്ടിലെ എല്ലാത്ത്രം കടകൾക്കും ഹോട്ടലുകൾക്കും തുറന്നുപ്രവർത്തിക്കാമെന്റ് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി അറിയിച്ചു ഉത്സവസീസൺ പ്രമാണിച്ചാണ് കൂടുതൽ ഇളവ്

ഇതോടെ രാജ്യത്ത് വീണ്ടും അടച്ചിടൽ വേണ്ടിവരുമെന്ന് പാക് അധിതർ മുന്നറിയിപ്പ് നൽകി

നിലവിൽ ഒരുഭാഷയെ ഇംഗ്ലീഷിലേക്ക് മാറ്റി അതിൽനിന്നും മറ്റുഭാഷയിലേക്ക് മാറ്റുന്ന സ്ഫോട് വെയറുകളാണ് വ്യാപകം യഥാർത്ഥഭാഷയിൽ നിന്ന് നേരിട്ട് തർജ്ജമ ചെയ്യുന്നതോടെ കൂടുതൽ മികച്ച പരിഭാഷ സൃഷ്ടിക്കാനാകുമെന്ന് കരുതുന്നു